റഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം യാത്രതിരിക്കും വ്ളാഡിമർ പുടിൻമായുള്ള ചർച്ചകളെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് പ്രധാനമന്ത്രി

ഐ

ഐ ബാങ്കിന്റെ മൂലധനം പുനരുജ്ജീവിപ്പിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര ക്യാബിനറ്റിന്റെ ആംഗ്ലീകാരം

ജമ്മു കാശ്മീരിൽ മൊബൈൽ ഫോൺ സേവനങ്ങൾക്കുള്ള നിയന്ത്രണം ആഴ്ചകൾക്കുള്ളിൽ പിൻവലിക്കുമെന്ന് കേന്ദ്രആഭൃന്തരമന്ത്രി അമിത് ഷാ

പ്രകൃതിദുരന്തങ്ങൾക്ക് തകർക്കാനാവാത്ത കേരളം വാർത്തെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇന്ത്യൻ പ്രതിരോധരംഗത്തിന് കരുത്തേകി എട്ട് അപ്പാച്ചെ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായി

റഷ്യൻ നഗരമായ വ്ളാഡിവസ്റ്റോക്കിൽ നടക്കുന്ന അഞ്ചാമത് കിഴക്കൻ സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം

വിശദാംശങ്ങളുമായി സുനീഷ് ഹോൾഡ് വോയ്സ് ഓവർ റഷ്യയുടെ കിഴക്കൻ മേഖലയിലേക്ക് ഒരു പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിതെന്നും ഇതിലൂടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുമെന്നും പ്രധാനമന്തി നരേന്ദ്ര മോദി വൃക്തമാക്കി മേഖലയിൽ ഇരുരാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുന്ന തരത്തിലുള്ള സഹകരണം ഉറപ്പാക്കാൻ കിഴക്കൻ സാമ്പത്തിക ഫോറത്തിലെ ചർച്ചുകളിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു തന്ത്രപ്രധാന മേഖലകളിലും വാണിജ്യം നിക്ഷേപം എന്നീ മേഖലകളിലും ഇരുരാജ്യങ്ങളും തമ്മിൽ ശക്തമായ നയത്രന്ത ബന്ധം നിലനിൽക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സൃഷ്ടിക്കുന്നതിലും പ്രാദേശിക ബഹുമുഖ മേഖലകളിൽ വർദ്ധിച്ച സഹകരണം ഉറപ്പാക്കുന്നതിനുമാണ് ഇരുരാജ്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം വ്യക്ത്യമാക്കി

ഇതിലൂടെ കപ്പൽ ഫ്ലിർമ്മാണത്തിലെ റഷ്യയുടെ മികവിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുമെന്നും ഈ മേഖലയിൽ സഹകരണ്ട് മെച്ചപ്പെടുത്താൻ സഹായക മാകുമെന്നും പ്രധാന്മുത്തി പറഞ്ഞു

എണ്ണ പ്രകൃതിവാതകം തുടങ്ങിയ രംഗങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ സഹകരണം ഉറപ്പാക്കാൻ അഞ്ച് വർഷത്തേക്കുള്ള രൂപരേഖ തയ്യാറാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കോൾ ഇന്ത്യ ലിമിറ്റഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റഷ്യയുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും

ഡി ബി ഐ ബാങ്കിന്റെ മൂലധന പുനരുജ്ജീവനത്തിനായി ഗവൺമെന്റും എൽ ഐ സിയും സംയുക്തമായി സഹായം നൽകുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നല്കി

ഡി ബി

ഇത് ബങ്കിംഗ് മേഖ്ലൂർയ് ശക്തിപ്പെടുത്തുകയെന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യം സാധൂക്ടരിക്കുന്നതാണെന്ന് കേന്ദ്രവാർത്താ വിതരണ പ്രഷേപണ വകുപ്പ് ്മന്ത്രി് പ്രകാശ് ജാവദേക്കർ പറഞ്ഞു ഇത് ഐ ഡി ബി

ഐ

ഒരുപോലെ മൂലധനം പുനരുജ്ജീവിപ്പിക്കുന്നതിലൂടെ ഭവന വായ്പ വാഹന വായ്പ തുടങ്ങിയവ വീണ്ടും അനുവദിക്കാൻ ഐ

ബി ഐ ബാങ്കിന് സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള നടപടികളാണ് കേന്ദ്രഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു രാജ്യത്തെ പഞ്ചസാര ഉല്പാദന മേഖല എഥനോൾ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിന്റെ കൂടുതൽ അടുത്ത് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നാളെ നടക്കും

എക്സ് മീഡിയ കേസിൽ മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ സി ബി ഐ കസ്റ്റഡി രണ്ട് ദിവസം കൂടി നീട്ടി

കസ്റ്റഡി കാലാവധി തീരുന്നതുവരെ ഇടക്കാല ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകരുതെന്നും കോടതി പറഞ്ഞു

ചിദംബരത്തെ തിഹാർ ജയിലിലേക്ക് അയയ്ക്കേണ്ടതില്ലെന്നും ഇടക്കാല ജാമ്യം വിചാരണ കോടതി പരിഗണിക്കണമെന്നും ഇന്നലെ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ്തയാണ് സുപ്രീഠകോടതിയെ സമീപിച്ചത്

ജമ്മു കാശ്മീർ പഞ്ചായത്ത് അസോസിയേഷൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹ്ട്ട് ഇക്കാര്യം അറിയിച്ചത്

ജമ്മൂർഡോഡ പ്രദേശങ്ങളിലേയും കശ്മീർ താഴ്വരയിലേയും മൊക്കബ്ൽ ഫോണുകളുടെ ഉപയോഗത്തിനുള്ള വിലക്ക് വലിയ ഒരളവോളം പിൻവലിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

എല്ലാ ഗ്രാമത്തിലേയും നാല് മുതൽ അഞ്ച് വരെയുള്ള യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കും ജമ്മു കാശ്മീർ ഉടൻ തന്നെ സാധാരണ നിലയിലേക്ക് മാറുമെന്നും കേന്ദ്രസഹമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു

പഠാൻകോട്ട് വ്യോമത്താവളത്തിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി ബി എസ് ധനോവ മുഖ്യാതിഥിയായിരുന്നു

കൊച്ചി മഹാരാജാസ് കോളേജ് മുതൽ തൈക്കൂടം വരെ ദീർഘിപ്പിച്ച കൊച്ചി മെട്രോ റെയിൽ സേവനത്തിന്റെയും വാട്ടർ മെട്രോ പ്രഥമ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനവും പേട്ട എസ്

ജംഗ്ഷൻ മെട്രോ റെയിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ശിലാസ്ഥാപനവും നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി സുനീഷ് വോയിസ് പ്രകൃതിദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന നാടായി കേരളത്തെ മാറ്റുന്നതിനുള്ള പുനഃനിർമാണ പ്രവർത്തനങ്ങളിലാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിർമാണ പ്രവർത്തനങ്ങളിലെ ഗുണനിലവാരം മികച്ചതാക്കണമെന്നതിൽ വിട്ടുവീഴ്ചയില്ല

വാട്ടർ മെട്രോയോടു ചേർന്ന് ബോട്ടു ജെട്ടികൾ വരുന്നതോടെ സമീപത്ത് കച്ചുവട സാധ്യതകളുണ്ടാവും ഈ ഓണം പരിസ്ഥിതി സൌഹാർദ്ദപരമായി പ്ലാസ്റ്റിക് മുക്തമായി നടത്താനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു മഹാരാജാസ് കോളേജ് മുതൽ തൈക്കൂടം വരെ അഞ്ചരക്കിലോമീറ്ററാണ് കൊച്ചി മെട്രോ റെയിൽ സേവനം വർധിപ്പിച്ചത്

പേട്ട എസ്

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയവർ കേസിൽ അഴിമതി ആരോപണം നേരിടുകയാണ്

വാർത്തക്കുറിപ്പിലൂടെയാണ് മിത്താലി രാജ് ഇൌ കാര്യം അറിയിച്ചത്